ഒരു രേഖയുമില്ലാത്ത നിരക്ഷരരായ പൌരന്മാർക്ക് സാക്ഷി കളെയോ സമുദായ അംഗങ്ങൾ നൽകുന്ന പ്രാദേശിക രേഖകളോ ഹാജ രാക്കാൻ അനുവദിക്കും ജനന തിയ്യതിയും ജനിച്ച സ്ഥലവും അല്ലെങ്കിൽ രണ്ടുംകൂടിയും ഉൾപ്പെട്ട ഏത് രേഖയും നൽകി പൌരത്വം തെളിയിക്കാമെന്ന് വക്താവ് അറിയിച്ചു ഈ പട്ടികയിൽ ഒട്ടേറെ സാധാരണ രേഖകൾ ഉൾപ്പെ ടാനിടയുണ്ടെന്നും ഇതിന്റെ വിശദമായ നടപടിക്രമങ്ങൾ പുറത്തിറക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ദർവ്വട്ടെഴ പൌരത്വ ഭേദഗതി നിയമത്തെ ദേശീയ പൌരത്വ രജിസ്റ്ററുമായി തെറ്റായി താരതമ്യപ്പെടുത്തി കോൺഗ്രസ് അധ്യക്ഷ സോണിയഗാന്ധി ജനങ്ങളെ തെറ്റി ദ്ധരിപ്പിക്കുകയാണെന്ന് മുതിർന്ന ബി

പി നേതാവും കേന്ദ്ര ധനമന്ത്രിയു മായ നിർമല സീതാരാമൻ കുറ്റപ്പെടുത്തി പ്രതിഷേധക്കാർ നിയമം വായി ക്കണമെന്നും ആവശ്യമെങ്കിൽ വിശദീകരണം തേടണമെന്നും അവർ ന്യൂഡൽഹിയിൽ പറഞ്ഞു പൌരത്വ ഭേദഗതി നിയമവും ഇതുവരെ രൂപം നൽകാത്ത പൌരത്വ രജിസ്റ്ററും തമ്മിൽ ബന്ധപ്പെടുത്തി കോൺഗ്രസും ഇട തുപാർട്ടികളും തൃണമൂൽ കോൺഗ്രസും മറ്റും ഭയം സൃഷ്ടിക്കുകയാ ണെന്നും ധനമന്ത്രി പറഞ്ഞു ദർവ്വട്ടെഴ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്താൻ ജനങ്ങൾക്കവകാശമുണ്ടെന്ന് പൌരത്വ ഭേദഗതി നിയമ ത്തിൽ എൻ

എ ഗവൺമെന്റിനെ വിമർശിച്ച കോൺഗ്രസ് അധ്യക്ഷ സോണിയഗാന്ധി പറഞ്ഞു ജനങ്ങളുടെ ശബ്ദം കേന്ദ്രഗവൺമെന്റ് അവഗ ണിക്കുകയാണെന്ന് വീഡിയോ സന്ദേശത്തിൽ അവർ കുറ്റപ്പെടുത്തി രുമെട്ടറു ഓൾഡ് ഡൽഹിയിൽ അക്രമാസക്തമായ പ്രതിഷേധവുമായി ബന്ധ പ്പെട്ട് ഒട്ടേറെപേരെ ഡൽഹി പൊലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് പുലർച്ചെ ജുമാമസ്ജിദിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദും ഇതിൽ ഉൾപ്പെടുന്നു പുറമെ നിന്നുള്ളവരും അക്രമ സംഭവങ്ങ ളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പൊലീസ് വക്താവ് പറഞ്ഞു

ഇതുസംബന്ധിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ ഉത്തരവിറക്കി ദേശീയ പൌരത്വ രജിസ്റ്റർ നടപടികളുമാ യി ഗവൺമെന്റ് സഹകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓ ഫീസ് അറിയിച്ചു ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് വൃതിചലിക്കുന്നതിനാ ലും പരമോന്നത നീതിപീഠത്തിന്റെ പരിഗണനയിലായതിനാലും ആണ് രജി സ്റ്റർ തയ്യാറാക്കുന്ന നടപടികൾ നിർത്തിവെയ്ക്കുന്നതെന്ന് ഓഫീസ് വിശദീ കരിച്ചു പൌരത്വ നിയമ ഭേദഗതിയുടെ പശ്ചാത്തലത്തിൽ ഉയർന്നുവന്ന ആ ശങ്കകൾകൂടി കണക്കിലെടുത്താണ് തീരുമാനമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി

കെ പ്രേമചന്ദ്രൻ എം പി ആവശ്യപ്പെ ട്ടു ദേശീയ പൌരത്വ രജിസ്റ്റർ കണക്കെടുപ്പിൽ ഇന്ത്യൻ പൌരത്വം നിഷേധി ക്കപ്പെടുന്നവരെ പാർപ്പിക്കാൻ തടവുകേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിന് രൂപക ല്പനയും സൌകര്യങ്ങളും സംബന്ധിച്ച വിവരങ്ങളടങ്ങിയ കേന്ദ്ര ഗവൺമെന്റിന്റെ കത്ത് സംസ്ഥാന ഗവൺമെന്റിന് ലഭിച്ചിട്ടുണ്ടോയെന്ന് മു ഖൃമന്ത്രി വൃക്തമാക്കണമെന്ന് അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു ദർവ്വട്ടെഴ കേന്ദ്ര സ്ഥിതിവിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം നടത്തുന്ന ഏഴാമത് സാമ്പത്തിക സെൻസസിന്റെ സംസ്ഥാനത്തെ ഫീൽഡ് പ്രവർത്ത നങ്ങൾ ചൊവ്വാഴ്ച ആരംഭിക്കും രാജ്ഭവനിൽ നടക്കുന്ന പ്പടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ്ഖാന്റെ വിവരങ്ങൾ ശേഖരിച്ച് സെൻസസ് നടപടികൾക്ക് തുടക്കമിടും രാജ്യത്തെ സംരംഭങ്ങളുടെ വിവിധ സ്വഭാവ സവിശേഷതകൾ പഠിച്ച് സമ്പദ് വ്യവസ്ഥയിലുണ്ടായ മാറ്റത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്ന തിനാണ് ധനകാര്യ സെൻസസ് നടത്തുന്നത് ജോലിക്കാരുടെ എണ്ണം പ്രവർത്തനങ്ങൾ മേഖല തിരിച്ചുള്ള പ്രവർത്തനം എന്നിവ സെൻസസിൽ പഠനവിധേയമാക്കും രംഭട്ട്ട്ട്ട്ട്ട്ട്ട് ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത നാടിന്റെ വികസനമുന്നേറ്റത്തിന്റെ ചാലകശക്തിയാണ് കിഫ്ബിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറ ഞ്ഞു കിഫ്ബി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സംസ്ഥാന തല പ്രദർശനമായ കേരള നിർമിതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

പി സംസ്ഥാന പ്രസിഡന്റുമായ തോമസ് ചാണ്ടി എം

എയുടെ സംസ്കാരം ചൊവ്വാഴ്ച നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് കുട്ടനാട്ടിലെ ചേന്നംകരി സെന്റ് പോൾസ് മാർത്തോമ പള്ളിയിലെ കുടുംബ കല്ലറയിലാണ് സംസ്കാരം ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപൊലീത്ത സംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കും

മൂന്നു മണി മുതൽ അഞ്ചുമണി വരെ ആലപ്പുഴ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വെയ്ക്കും കൊച്ചിയിലെ വസതിയിൽ ഇന്നലെ വൈകീട്ടായിരുന്നു എഴുപ ത്തിരണ്ടുകാരനായ തോമസ് ചാണ്ടിയുടെ അന്തൃം പിണറായി ഗവൺമെന്റ് മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്നു രുട്ടിട്ട്ട്ട്ട്ട്ട്ട തോമസ് ചാണ്ടിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പ്രമുഖർ അനുശോചിച്ചു നിയമസഭാംഗമെന്ന നിലയിൽ കുട്ടനാട് പ്രദേശത്തിന്റെ വികസനത്തിന് തോമസ്ചാണ്ടി ചെയ്ത കാര്യങ്ങൾ ശ്രദ്ധേയമായിരുന്നുവെന്ന് പിണറായി വിജയൻ അനുസ്മരിച്ചു കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഇടപ്പെടലുകൾ അദ്ദേഹം നട ത്തിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ചെന്നെയിൻ എഫ് സി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നാലാം തോൽവിയാണിത് ഇന്ന് ഹൈദ്രാബാദ് എ

കെയെ നേരിടും രുട്ടിട്ട്ട്ട്ട്ട്ട കാലിക്കറ്റ് സർവകലാശാല അത്ലറ്റിക് മീറ്റിൽ പുരുഷ വനിതാ വിഭാഗ ങ്ങളിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ജേതാക്കളായി ട്രാൻസ്ജെൻ ഡർ വിഭാഗത്തിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഒന്നാമതെത്തി പുരുഷ വിഭാഗത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് രണ്ടാം സ്ഥാനവും പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മൂന്നാം സ്ഥാനവും നേടി വ നിതാ വിഭാഗത്തിൽ പാലക്കാട് മേഴ്സി കോളജിനാണ് രണ്ടാം സ്ഥാനം മ ണ്ണാർക്കാട് എം

എസ് കോളേജ് മൂന്നാമതെത്തി ട്രാൻസ്ജെൻഡർ വിഭാ ഗത്തിൽ മണ്ണാർകാട് എം

എസ് കോളജ് രണ്ടാം സ്ഥാനം നേടി

ബി കേരള മ ത്സരങ്ങൾക്ക് വയനാട് പ്രിയദർശനി ടീ എൻവയറൺസിൽ ഇന്ന് തുടക്ക മാകും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും വയനാ ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സൈക്ലിംഗ് ഫെഡറേഷൻ ഓ ഫ് ഇന്ത്യയും സംയുക്തമായാണ് എം

ബി കേരള മത്സരങ്ങൾ സംഘടി പ്പിക്കുന്നത്

ടി

സിയുടേയും ആഭിമുഖൃത്തിൽ തിരുവനന്തപുരം കനകക്കുന്നിൽ വസന്തോൽസവത്തിന് ഇന്ന് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ വസന്തോൽസവം ഉദ്ഘാടനം ചെയ്യും

മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു രദേഷ്ടെടു ഒളിമ്പിക്സ് മെഡൽ ലക്ഷ്യമാക്കി പദ്ധതികളാണ് സംസ്ഥാന കായിക വകുപ്പ് ആസൂത്രണം ചെയ്യുന്നതെന്ന് മന്ത്രി വി

ദേശീയ സ്കൂൾ കായികമേളയിൽ നാല് സ്വർണം നേടിയ ആൻസി സോജൻ ഡിസ്കസ്ത്രോയിൽ പങ്കെടുത്തു പി എ അതുല്യ പരിശീലകൻ വി വി സനോജ് എന്നിവർക്ക് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻ്ററി സ്കൂൾ പി

എ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പദരശ്ശിക്കു സവാള വില കുറയ്ക്കുന്നതിന് നാസിക്ക് ഉൾപ്പടെ സ്ഥലങ്ങളിൽ നി ന്നും ഇറക്കുമതി ചെയ്ത സവാള ഉടൻ കേരളത്തിലെത്തിക്കുമെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു ആലപ്പുഴയിൽ കാർഷിക വ്യാവസായിക പ്രദർ ശനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രദേഷ്ടെടു പഴം പച്ചക്കറികളുടെ വിദേശ കയറ്റുമതിയാണ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വി

തൃശൂരിൽ വി

ഇനി ഞാൻ ഒഴുകട്ടെ നീർചാൽ സംരക്ഷണ പദ്ധതി കോട്ടയം കുറുപ്പന്തറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രദേഷ്ടെടു നീർച്ചാലുകൾ വീണ്ടെടുക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിക്ക് മൂന്നാ റിൽ തുടക്കമായി എസ് രാജേന്ദ്രൻ എം

എ ഉദ്ഘാടനം ചെയ്തു മൂ ട ന്നാർ ടൌണിലൂടെ ഒഴുകുന്ന മുതിരപ്പുഴയാറിന്റെ ശുചീകരണ പ്രവർത്തന മാണ് പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ നടത്തിയത് രദേഷ്ടെടു ദി നം പ്രതി തിരിക്കേറുന്ന വി നോദ സഞ്ചാര കേറ്ര്ദ്രമായ വാഗമണിലെ വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് അടിയ ന്തിര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ എച്ച് ദിനേശന്റെ അധ്യക്ഷത യിൽ ഇടുക്കി കലക്ടറേറ്റിൽ ചേർന്ന യോഗം തീരുമാനിച്ചു പൈൻകാട് മൊട്ടക്കുന്ന് മുപ്പത്തിഅഞ്ചാംമൈൽ എന്നിവിടങ്ങളിലെ കച്ചവടക്കാരെയാ ണ് പുനരധിവസിപ്പിക്കേണ്ടത്

എറ ണാകുളം ഹെഡ് പോസ്റ്റാഫീസിന് മുന്നിൽ നടന്ന ധർണ്ണ കോൺഫെഡറേ ഷൻ ജില്ലാ സെകട്ടറി സി കെ മണിശങ്കർ ഉദ്ഘാടനം ചെയ്തു രദേഷ്ടങ കാലിക്കറ്റ് സർവകലാശാലു മുൻ സെനറ്റ് അംഗവും ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജ് മാനേജരുമായ ഫാദർ ജോസഫ് പൈക്കട സി

ഐ കോഴിക്കോട്ട് നിര്യാതനായി

മൃതദേഹം നാളെ രാവി ലെ ഒമ്പതിന് ദേവഗിരി ആശ്രമദേവാലയത്തിൽ പൊതുദർശനത്തിന് വെയ്ക്കും രണ്ട് മണിക്ക് സംസ്കരിക്കും ദർവ്വെടുക എക്കാലത്തും തൊഴിലാളിപക്ഷത്ത് നിലയുറപ്പിച്ച നേതാവായിരുന്നു കെ സാദിരിക്കോയെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറ ഞ്ഞു കെ സാദിരിക്കോയയുടെ ആറാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കർമ്മശ്രേഷ്ഠാ പുരസ്കാരം മുൻ മന്ത്രി പി ശങ്കരന് കോഴിക്കോട്ട് സമ്മാനി ക്കുകയായിരുന്നു മുല്ലപ്പള്ളി രുട്ടിട്ട്ട്ട്ട്ട്ട്ട കോഴിക്കോട് കാരശ്ശേരി ആനയാംകുന്നിൽ പ്തസ്ടു വിദ്യാർത്ഥിനി മരി ക്കാനിടയായ സംഭവത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ബി എസ് മാവോജി വിദ്യാർത്ഥിനിയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി യെടുത്തു കുട്ടിയുടെ വീട്ടുകാർക്ക് ധനസഹായത്തിന് നടപടി സ്വീകരിക്കാൻ പട്ടികജാതി വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും കമ്മിഷൻചെയർമാൻ പറ ഞ്ഞു

ഇതിന്റെ ഭാഗമായി അൾട്രാ സൌണ്ട് സ് കാനിങ് വന്ധ്യതാ ചികിത്സ എന്നിവ നടത്തുന്ന ഡോക്ടർമാർക്ക് നാളെ പ്ര ത്യേക പരിശീലനം സംഘടിപ്പിച്ചിതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറി യിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട വിയ്യൂർ ജയിലിൽ നിന്ന് എറണാകുളം കോടതിയിലേക്ക് ട്രെയിനിൽ കൊണ്ടുപോകുകയായിരുന്ന തടവുകാരെ ആക്രമിച്ചെന്ന പരാതിയിൽ ടി ടി

എഫ് സംസ്ഥാന സമ്മേളനം ഇന്ന് കോഴിക്കോട്ട് തുടങ്ങും രാ മു സ്ലിംലീഗ് സ്ഥാ ന വി ലെ പ്ര സി ഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും